റോഡ് ഷോകളും പൊതുപരിപാടികളും സംഘടിപ്പിച്ചു കൊണ്ട് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് രംഗം സജീവം

ബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയും ചെന്നൈ സൂപ്പർ കിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും

വിശദാംശങ്ങളുമായി ലിഖിത വിജയിൻ്

സംസ്ഥാനത്തിന്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും വികസനത്തെ കോൺഗ്രസ് അവഗണിക്കുകയായിരുന്നുവെന്ന് ശ്രീ

അസമിലെ ഗോപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും നുഴഞ്ഞുകയറ്റത്തിനും ഭീകരവാദത്തിനും അഴിമതിക്കുമെതിരെ കാവൽക്കാരൻ പോരാടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജെ

പത്രിക സമർപ്പണത്തിന് മുമ്പായി അദ്ദേഹം റോഡ്ഷോ സംഘടിപ്പിച്ചു

എ ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ച് വർഷം രാജ്യത്തിന്റെ സമ്പദ് വൃവസ്ഥ മോശം രീതിയിലാണ് കൈകാരൃം ചെയ്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആനന്ദ്ശർമ്മ ന്യൂഡൽഹിയിൽ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രാദേശിക റേഡിയോ നിലയങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ ഇന്നലെ പരിശീലനം സംഘടിപ്പിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും അവസാന പൌരനിലേയ്ക്കും എത്തിച്ചേരാൻ കഴിയുന്ന മാധ്യമമാണ് പ്രദേശിക റേഡ്ടിയ്യോ് എന്ന് മുതിർന്ന ഉപ തെരഞ്ഞെടുപ്പ് കമ്മീണർ ഉമേഷ് സ്ിൻഹ പറഞ്ഞു പ്രാദേ ശിക ഭാഷയിൽ വസ്തുതകൾ ജനങ്ങളിൽ എത്തിച്ച് രാജ്യത്തെ ജനാധിപതൃം ശക്തിപ്പെടുത്തുന്നതീനും പ്രാദേശിക റേഡിയോകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസമായതിനാലാണ് നടപ ടി അക്കൌണ്ട്സ് ഉദ്യോഗസ്ഥരും മറ്റും ഇന്ന് ബാങ്കുകളിലുണ്ടാക ണമെന്നും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടത്തണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്

അഫ്ഗാനിസ്ഥാനിലെ വട ക്കൻ പ്രവിശ്യയായ ബൽഖിൽ വച്ചാണ് ദൊസ്തുമിനു നേരെ ആക്രമണമുണ്ടായത് തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അതേസമയം ദൊസ്തുമിന്റെ അംഗരക്ഷകൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സംഭവത്തിൽ ചില സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരി ക്കേറ്റു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും വൈസ് പ്രസിഡന്റിന്റെ നാല് അംഗരക്ഷകൻ കൊല്ലപ്പെട്ടതായും താലിബാൻ വക്താവ് അറിയിച്ചു

വോട്ടെടുപ്പിനായി വിന്യ സിച്ച കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൽ ദുബെ വിലയിരുത്തുമെന്ന് സംസ്ഥാന അഡ്രീഷണൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സജ്ഞായ് ബസ്കൂ പ്പർഞ്ഞു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയ്ക്ക് ക്കാൽക്കത്തയിലെ സുരക്ഷസേന ഉദ്യോഗസ്ഥരെയുട്ട് അദ്ദേഹം സന്ദർശിക്കുമെന്നും ശ്രീ ബസു അറിയിച്ചു

സാന്റെയിഗോ വിമാനത്താവളത്തിൽ ചിലിയിലെ സ്ഥാനപതിമാരും ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണമാണ് കഴിഞ്ഞ രാത്രി നൽകിയത് സന്ദർശന വേളയിൽ അദ്ദേഹം ചിലി പ്രസി ഡന്റുമായി കൂടിക്കാഴ്ച നടത്തും പൊതു താല്പരൃമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും തുടർന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വൃവസായ സമ്മേളനത്തിൽ പങ്കെടുക്കും

ക്രൊയേ ഷ്യ ബൊളീവിയ ചിലി തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഏപ്രിൽ നാലാം തീയതിവരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് തൽവാറിന്റെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടി ആരംഭിച്ചത് അഴിമതിക്കേസിലെ പ്രതിയായശേഷം ദുബായിയിൽ നിന്നും ഈ വർഷം ജനുവരിയിൽ നാടുകടത്തപ്പെട്ട തൽവാറിനെ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വ്യോമയാന്റു മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻമാർക്കെതിരെ സി ബി ഐ ച്ചാർജ് ചെയ്ത എഫ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എല്ലിൽ ഇന്നലെ സൂപ്പർ ഓവറോളം നീണ്ട പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ക്യാപി റ്റൽസിന് ജയം

ഇതോടെയാണ് വിജയികളെ നിശ്ചയിക്കാൻ സൂപ്പർ ഓവർ വേണ്ടി വന്നത്

എന്നാൽ ഡൽഹിക്കായി എത്തിയ റബാദ വിട്ടുകൊടുത്തില്ല

ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ കിംങ്സ് ഇലവൻ പഞ്ചാബ് എട്ട് വിക്കറ്റിന് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു

എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് നാലിന് സൺറൈസേഴ്സ് ഹൈദ്രാബാദും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഹൈദ്രാബാ ദിൽ ഏറ്റുമുട്ടും രാത്രി എട്ടിന് ചെന്നൈയിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പൂർണ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനാണ് ഇത് ലക്ഷ്യമിടുന്നത് മികച്ച രീതിയിൽ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാനുള്ളൂ എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണെന്ന് മേഘാലയ്യിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എഫ് ആർ ഖർകോങ്ഗർ പാഞ്ഞു

ഇരുരാജ്യങ്ങളും പരസ്പര സൌഹാർദ്ദം കാഴ്ചവെച്ചാണ് പരിശീലനം നടത്തുന്നത് ഇത് മേഖലയിൽ സമാധാനം സ്ഥാപിക്കുമെന്നും കൂട്ടായ നന്മയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ആയിരം വർഷത്തെ ബന്ധമാണ് പങ്കുവയ്ക്കുന്നതെന്ന് മഹേഷ് സേനാ നായകെ പറഞ്ഞു

ഭീകരരെ പിടിക്കൂടുന്നതിനായ് പ്രദേശത്ത് സേന വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു

ഇത്തരം കേസുകൾ ആറ് മാസത്തിനുള്ളിലോ ഒരു വർഷത്തിനകമോ തീർപ്പാക്കാൻ പ്രത്യേക ബഞ്ചുകൾ